അഷ്റഫ് ഘനി വിജയിച്ചതായി സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു

മരണസംഖൃ രണ്ടായിരം ആയി

സുസ്ഥിരമായ കൃഷിയിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇത് കർഷകരെ സഹായിക്കുന്നു

ഈ ദൌത്യത്തിലൂടെ അഞ്ചു വർഷമായി വിളകളൂടെ ഉൽപ്പാദനം തുടർച്ചയായി വർദ്ധിച്ചതായി കൃഷി സെക്രുട്ടറ്റി ഗ്രസഞ്ജയ് അഗർവാൾ ആകാശവാണി വാർത്തകളോട് പറഞ്ഞുപൂർങ്ക്യത്തെ എല്ലാ കർഷകർക്കും മണ്ണ് ആരോഗ്യ കാർഡ് ്വിത്രണം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സഹായം നൽകാന്റാണ് പദ്ധതി ആവിഷ്ക്കരിച്ചത് മണ്ണിന്റെ പോഷക ഘടനയനുസരിച്ച് പ്രഖളത്തിന്റെ അളവ് സംബന്ധിച്ച നിർദ്ദേശവും കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് കേന്ദ്രസർക്കാർ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കാനുള്ള തീയതി ഇന്നത്തെ യോഗം തീരുമാനിച്ചേക്കും

മരുന്ന് വസ്ത്രനിർമ്മാണം വാഹന നിർമ്മാണം ടെലികോം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചതായി ധനമന്ത്രി യോഗത്തിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ വരവു നിലച്ചത് മരുന്ന് രാസവസ്തുക്കൾ സൌരോർജ്ജ ഉപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളെ ബാധിച്ചതായി യോഗം വിലയിരുത്തി കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം വില വർദ്ധിക്കുന്ന സാഹചര്യം രാജ്യത്ത് നിലവിലില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

നരേന്ദ്രമോദ്യു ഞാ്യറാഴ്ച ആകാശവാണിയിലൂടെ ജനങ്ങളുമൂയി ആശയങ്ങൾ പങ്കുവയ്ക്കും

ഒരു വർഷത്തിൽ ഒന്നിലധികം യോഗ്യതാ തീയതികൾ വോട്ടർ പട്ടികയുമായി ആധാർ ബന്ധിപ്പിക്കൽ പണം നൽകിയുള്ള വാർത്താ പ്രചരണം തെറ്റായ സത്യവാങ്മൂലം അഴിമതി എന്നീ വിഷയങ്ങളിലായിരുന്നു ചർച്ചു അച്ചടി മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും ജനപ്രാതിനിധ്യ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടിയാലോചന നടന്നു വിവിധ നിർദ്ദേശങ്ങൾ പരിഗണിച്ചു വരികയാണെന്ന് നിയമ നിർമ്മാണ വകുപ്പ് സെക്രട്ടറി നാരായണൻ രാജു അറിയിച്ചു

അതേസമയം ഇക്കാര്യം അംഗീകരിക്കാൻ വിസമ്മതിച്ച എതിർ സ്ഥാനാർത്ഥി അബ്ദുള്ള അബ്ദുള്ള സ്വയം വിജയിയായി അവകാശപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് താൻ സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഈ ഫലപ്രഖ്യാപനത്തെ താലിബാനും തള്ളിക്കളഞ്ഞു

മിക്ക രോഗികൾക്കും നേരിയ അസുഖം മാത്രമേ ഉള്ളൂവെന്ന് ചൈനീസ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട പഠനത്തിൽ അവകാശപ്പെടുന്നു വൈറസിന്റെ പ്രഭവകേന്ദ്രമായ ഹുബെയ്ക്ക് പുറത്ത് പുതിയ കേസുകളുടെ റിപ്പോർട്ട് ചെയ്യുന്നത് മന്ദഗതിയിലായത് വൈറസ്ബാധ നിയന്ത്രണത്തിലായതിന്റെ സൂചനയാണെന്ന് ചൈനയുടെ ദേശീയ ആരോഗ്യ അതോറിറ്റി അറിയിച്ചു ചൈനയുടെ നടപടികൾ പ്രകടമായ പുരോഗതി കൈവരിക്കുകയാണെന്ന് പ്രസിഡന്റ് ഷി ജിൻപിംഗ് ഇന്നലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ സ്ഥിതി നിയന്ത്രണവിധേയമാണോ എന്ന് പറയാറായിട്ടില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ

യിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്

അതിനിടെ കൊറോണ സംശയത്തെ തുടർന്ന് ആലപ്പുഴയിൽ ഒരാളെ ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി പ്രവേശിപ്പിച്ചു ചൈനയിൽ നിന്നും വന്ന് ഡൽഹിയിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയെയാണ് നാട്ടിലെത്തിയപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് മറ്റൊരാൾ വീട്ടിലും നിരീക്ഷണത്തിലാണ്

ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡൂപ്പിൽ നേപ്പാൾ ഇന്ത്യ ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ അയൽപക്കം ആദ്യു നെയ്ത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നും അദ്ദേഹം സുരക്ഷ സാമ്പത്തിക ഭാവി സമൃദ്ധി എന്നിവയിൽ പ്രി്യാന് ആശങ്കകളും സംവേദനക്ഷമത അയൽരാജ്യങ്ങൾ ശ്രദ്ധിക്ക്ണ്ടെന്നും ശ്രീ സുജൻ ചിനോയ് പറഞ്ഞു

ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും ജനസംഖ്യയുടെ പകുതിയോളം പട്ടിണിയിൽ കഴിയുന്ന സാഹചര്യത്തിലാണിത് രണ്ടായിരത്തോളം വെട്ടുക്കിളികളെ കണ്ടതായി കൃഷിമന്ത്രി ഒൻ യോതി അഡിഗോ മാധ്യമങ്ങളോട് പറഞ്ഞു വെട്ടുക്കിളിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു എത്യോപ്യ കെനിയ ഉഗാണ്ട എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ഇക്ക്വറ്റോറിയ സംസ്ഥാനത്ത് വെട്ടുക്കിളികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവ അടുത്തിടെ ടാൻസാനിയ ഉഗാണ്ട എന്നീ ഇടങ്ങളിലും എത്തി

കഴിഞ്ഞ വർഷത്തെ മത്സരത്തിൽ ഫൈനലിൽ എത്തിയ സുനിൽ കുമാർ വെള്ളി മെഡൽ നേടിയിരുന്നു

റെഡ് ത്രോട്ടട് ത്രഷ് പ്ലംബിയസ് വാട്ടർ റെഡ് സ്റ്റാർട്ട് എന്നീ പക്ഷികളെ ആദ്യമായാണ് ലഡാക്കിൽ കണ്ടെത്തുന്നത് എന്നാൽ കോമൺ റോസ് ഫിഞ്ച് ഗ്രേ ഹാരൺ എന്നീ പക്ഷികൾ പതിവിലും നേരത്തെ ലഡാക്കിൽ എത്തിച്ചേർന്നു